ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് പ്രഖ്യാപിക്കും

കിറ്റുകൾ സ്ബ്രിഡിച്ച് കേന്ദ്ര ആരോഗ്യ ന് മന്ത്രാലയം മാർഗ്ഗുന്നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു

പ്രവർത്തിക്കുമെന്ന് അമേരിക്ക ഇന്ത്യയ്ക്ക് വെന്റിലേറ്ററുകൾ ലഭ്യമാക്കുമെന്ന് ഡോണൾഡ് ട്രംപ്

ചൈനയിൽ വീണ്ടും രോഗബാധ

കോവിഡ് പ്രതിസന്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ രാജ്യത്തിന്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്താനും ജനങ്ങളുടെ ക്ഷേമത്തിനുമുള്ള പദ്ധതികളാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി കേന്ദ്ര ധനമന്ത്രി പ്രഖ്യാപിച്ചത് സൂക്ഷ്മ ചെറുകിട വ്യവസായം ഇതര സംസ്ഥാന തൊഴിലാളികൾ കർഷകർ ചെറുകിട വ്യാപാരികൾ വഴിയോര കച്ചവടക്കാർ തുടങ്ങിയവരുടെ ക്ഷേമത്തിനുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു കൃഷി മത്സ്യബന്ധനം മൃഗസംരക്ഷണം ഔഷധ സസ്യ കൃഷി തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകികൊണ്ടുള്ള പദ്ധതികളാണ് ശ്രീമതി നിർമ്മലാ സീതാരാമൻ മൂന്നാം ഘട്ടത്തിൽ ജൂന്നലെ പ്രഖ്യാപിച്ചത്

ഇ കിറ്റുകളും മാസ്ക്കുകളും നിർമ്മിക്കിട്നുള്ള ശേഷി കൈവരിച്ചതായി കേന്ദ്ര സർക്കാർ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർധന്റെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡിനെ സംബന്ധിച്ച മന്ത്രിതല സമിതി യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നിലവിലെ ആവശ്യം നിറവേറ്റാൻ ഇത് പര്യാപ്തമാണെന്ന് യോഗം വിലയിരുത്തി

ഇ കിറ്റുകളും സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര പ്രദേശങ്ങൾക്കും നൽകി

രാജ്യത്ത് ഗ്രീൻ സോണായി പ്രഖ്യാപിച്ച ഗോവയിലും മണിപൂരിലും വീണ്ടും രോഗം റിപ്പോർട്ട് ചെയ്തതോടെ മുൻകരുതൽ ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അതിനിടെ മദ്യശാലകൾ അടയ്ക്കണമെന്ന മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ മദ്യ വിൽപന പുനരാരംഭിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുച്ചിറപ്പള്ളി വാർത്താവിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

കോവിഡ് ആശുപത്രികൾക്ക് പുറ്മെ കോവിഡ് വിഭാഗം പ്രവർത്തിക്കുന്ന ആശുപീത്രികളിലും ആരോഗ്യ പ്രവർത്തകർ പി

സമ്പർക്കത്തിലൂടെ രോഗം പടരാനുള്ള സാധ്യത മുന്നിലുള്ളതിനാൽ കരുതൽ വർധിപ്പിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

രോഗികൾ കൂടിയാൽ ഇപ്പോഴുള്ള ശ്രദ്ധ ചികിത്സയിൽ നൽകാനാകില്ല

രോഗചികിത്സയ്ക്കായി ഇന്ത്യയ്ക്ക് വെന്റിലേറ്ററുകൾ ലഭ്യമാക്കുമെന്നും യു

വൈറസിനെതിരായ വാക്സിൻ വികസിപ്പിക്കുന്നതിന് ഇന്ത്യയും അമേരിക്കയും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ട്രംപ് അറിയിച്ചു

കൊറോണ വൈറസിന്റെ പ്രഭവ കേന്ദ്രമായി ചൈനയിൽ വീണ്ടും കോവിഡ് റിപ്പോർട്ട് ചെയ്തു

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു

ആന്ധ്ര ് ഒഡീഷ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു

ആവശ്യമായ മുന്നിറ്റിയിപ്പുകൾ വേണ്ട സമയത്ത് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു